പോലീസ് നടപടികളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ബി ജെ പി

അർജന്റീനയിൽ യൂത്ത് ഒളിമ്പിക്സ് അമ്പെയ്ത്തിൽ

ഉച്ചകോടിക്കിടെ വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും വിശദാംശങ്ങളുമായി അരുൺകുമാർ

വാണിജ്യം നിക്ക്ഷേപം സുരക്ഷ വിനോദസഞ്ചാരം എന്നീ രംഗങ്ങളിൽ ഏഷ്യക്കും യൂറോപ്പിനും സഹകരിക്കാനുള്ള മേഖലകൾ കണ്ടെത്താനും ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുമുള്ള പ്രധാന വേദിയായാണ് ഉച്ചകോടി പരിഗണിക്കപ്പെടുന്നത്

ഒന്നാം ദിനമായ ഇന്ന് ബൽജിയം രാജാവുമായി ഉപരാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ച നടത്തും ഇരുരാജ്യങ്ങൾക്കിടയിലെ ഉഭയകക്ഷി ബന്ധവും പരസ്പർ സഹകരണവും ചർച്ചയിൽ വിഷയമാകുമെന്നാണ് കരുതപ്പെടുന്നത്

ഉദ്ഘാടന ചടങ്ങിലും പ്ലീനറി സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും

ബ്രസ്സൽസിലെ ആന്റ്വെർപ്പിലുള്ള ഗാന്ധി പ്രതിമയിൽ ശ്രീ

എൻ

റ്റി പാർട്ടികളാണ് മത്സരരംഗത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്നത് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾക്ക് മുമ്പിൽ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു സമാധാനപരവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്

ഇത് സംബന്ധിച്ച വാർത്ത തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും അത് വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം ശ്രീ മോദിയെ ധരിപ്പിച്ചു മൈത്രിപാല സിരിസേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ഫോൺ വഴി ആശയ വിനിമയം നടത്തിയിരുന്നു ഇരുരാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന ശക്തമായ സൌഹൃദം തകർക്കാനുള്ള ഇതിന് പിന്നിലെന്നും ശ്രീ

മോദിയെ ശ്രീലങ്കയുടെ ആത്മാർത്ഥ സുഹൃത്തായാണു കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വ്യാജ വാർത്തയ്ക്കെതിരെ പ്രസിഡന്റും ശ്രീലങ്കൻ ഗവൺമെന്റും സ്വീകരിച്ച നിലപാടിനെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദിച്ചു പ്രചരണം തീർത്തും അടിസ്ഥാന രഹിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിൽ അദ്ദേഹം സന്തോഷം അറിയിച്ചു ഈ ഇ്തുരാജ്യങ്ങളും തമ്മിൽ സുദൃഢമായ ബന്ധം നിലനിർത്തും ഒന്നാമത് എന്നാണ് ഇന്ത്യുയുടെട്ടു നയവും മുൻഗണനയുമെന്നും രാജ്യങ്ങൾ തമ്മിലുള്ള ബസ്സ് കൂടുതൽ ഊട്ടിയുറപ്പിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി

പ്രതിമ ഉദ്ഘാടനം വലിയതോതിൽ ആഘോ ഷിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെന്ന് ഗുജറാത്ത് ഡെപ്യൂട്ടി മുഖ്യമന്ത്രി നിതിൻ പട്ടേൽ അറിയിച്ചു ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്പഭായി പട്ടേലിന്റെ സ്വപ്നമായിരുന്നു അടിത്തിടെ പണിതീർക്കപ്പെട്ട സർദാർ സരോവർ ഡാം എന്നും അദ്ദേഹം പറഞ്ഞു

ടെലികമ്യൂണക്കേഷൻസ് മന്ത്രാലയവും യു

യും പുറ ത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാരൃം വൃക്തമാക്കിയ ത് ഇത്തരം മാധ്യമ റിപ്പോർട്ടുകൾ ജനങ്ങൾക്കിടയിൽ അനാവശ്യ ഭയം ഉണ്ടാക്കുന്നവയാണ് ആധാർ കാർഡ് സമർപ്പിച്ച് നേടിയു മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടില്ലെന്നും പ്രസ്താവന യിൽ വ്യക്തമാക്കുന്നു അധാർ കേസില്ലെ സുപ്രീംകോടതി വിധി അനുസരിച്ചുള്ള മൊബൈൽ ആപ്പിക്കേഷിനിലൂടെ പുതിയ സിം കാർഡുകൾ നൽകാ നുള്ള നടപടി ക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി

ഓഫ് ലൈൻ നടപടിക്രമം തിങ്കളാഴ്ച ആരംഭിക്കും

തീർത്ഥാടകർക്ക് ആവശ്യമായ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് നടപടിക്രമങ്ങൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു തീർത്ഥാടകർക്ക് വേണ്ട സുരക്ഷയും വൈദ്യസഹായവും ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു

ശബരിമല കലാപഭൂമിയാണെന്ന പ്രതീതി സൃഷ്ടിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വരുന്നവരെ പിന്തിരിപ്പിക്കാനാണ് നീക്കമെന്നും ശബരിമലയെ കലാപഭൂമിയാക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി ഫെയ്സ് ബുക്കിൽ കുറിച്ചു എല്ലാ വിഭാഗങ്ങൾക്കുമിടയിലായി ഇന്ന് നിലനിൽക്കുന്ന ശബരിമലയുടെ സ്വീകരൃത തകർത്ത് അതിനെ സവർണ ജാതി ആധിപത്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു

അനിഷ്ട സംഭവങ്ങൾക്ക് കാരണക്കാർ ഗവൺമെന്റും പോലീസുമാണെന്ന് സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തിരുവന്തപുരത്ത് സംഘർഷം പറഞ്ഞു ഉണ്ടായത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്നും മാധ്യമപ്രവർത്തകർക്കും മാന്യമ സ്ഥാപനങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ മാത്രമെ കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ നിയമനിർമാണം നടത്താനാകൂവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു

ശബരിമല കർമ്മസമിതിയും അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തും സംസ്ഥാനത്ത് ആഹാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു അതിനിടെ നിലയ്ക്കലിൽ നിരോധനാജ്ഞ ലംഘിച്ച യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളുമായി അരുൺകുമാർ

രാവിലെ സന്നിധാനത്തേയ്ക്ക് പ്പോകാനുള്ള മാധ്യമപ്രവർത്തക യായ ശ്രീമതി സുഹാസിനി രാജിന്റെ നീക്കം പ്രതിഷേധത്തെ തുടർന്ന് മരക്കൂട്ടത്ത് നിർത്തിവച്ചു പോലീസ് അകമ്പടിയോടെ സന്നിധാനത്തേയ്ക്ക് പൂറ്റപ്പെട്ട ശ്രീമതി സുഹാസിനി പ്രതിഷേധം മൂലം യാത്ര പൂർത്തിയാക്കാനാവാതെ പമ്പയിലേക്ക് മടങ്ങി അതിനിടെ ശബരിമലയിലെ സംഭവ വികാസങ്ങളുമായി ബന്ധ പ്പെട്ട് എൻ

എ പിന്തുണയിൽ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ കെ എസ് ആർ ടി സി

സ്വാകാര്യബസുകൾ സർവ്വീസ് നടത്തുന്നില്ല വാഹനങ്ങൾ നിരത്തിൽ പൊതുവെ കുറവാണ് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിങ്കെ യുൾപ്പെടെയുള്ള നേതാക്കളുമായി ശ്രീലങ്കൻ പ്രധാനമന്ത്രി സന്ദർശനത്തിനിടെ കൂടിക്കാഴ്ച നടത്തി

നിലവിലുള്ള അല്ലെങ്കിൽ മുൻകാല ബാങ്ക് അക്കൌണ്ടുകളിലൂടെ തെരഞ്ഞെടുപ്പ് ചെലവ് അനുവദനീയനമല്ല